ബാങ്കുകളും ഇൻഷുറൻസ് സ്ഥാപനങ്ങളും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ മാത്രം

ത പൊലീസ് പാസിന് അപേക്ഷിക്കാൻ ഓൺലൈൻ സംവിധാനം വൈകീട്ട് നിലവിൽ വരും ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്യൻ യൂണിയൻ കൌൺസിൽ യോഗത്തിൽ ഇന്ന് പ്രത്യേക ക്ഷണിതാവായി പങ്കെടുക്കും

എസ് ഡോളർ സഹായം ലഭിക്കും വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ നിലവിൽ വന്നു

ലോക്ഡൌൺ മാർഗ്ഗ നിർദേശങ്ങൾ പുതുക്കി ഉത്തരവിറക്കി

പാഴ്സലും ഹോംഡെലിവറിയും മാത്രമേ അനുവദിക്കു ബാങ്കുകളും ഇൻഷുറൻസ് സ്ഥാപനങ്ങളും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ മാത്രമാണ് പ്രവർത്തിക്കുക സെബിയുടെ അംഗീകാരം ലഭിച്ച ധനകാര്യ സേവന സ്ഥാപനങ്ങൾ ക്യാപിറ്റൽ ആന്റ് ഡെറ്റ് മാർക്കറ്റ് സർവ്വീസുകൾ എന്നിവയ്ക്കും സഹകരണ ക്രഡിറ്റ് സൊസൈറ്റികൾക്കും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ പ്രവർത്തിക്കാം രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ആശുപത്രിയിൽ നിന്ന് നൽകുന്ന തെളിവ് കാണിച്ച് യാത്ര ചെയ്യാം അഭിഭാഷകർക്കും ക്സാർക്കുമാർക്കും നേരിട്ട് ഹാജരാകേണ്ട ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യാം ഭക്ഷണ മെഡിക്കൽ വസ്തുക്കൾ പാക്ക് ചെയ്യുന്ന വ്യവസായ യൂണിറ്റുകൾക്കും വിദേശത്തേക്ക് സാധനങ്ങൾ അയക്കുന്ന യൂണിറ്റുകൾക്കും പ്രവർത്തിക്കാം ഏതാനും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് വകുപ്പുകളേയും പുതുക്കിയ മാർഗനിർദേശത്തിൽ ലോക്ഡൌണിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്

ജനങ്ങളുടെ യാത്ര നിയന്ത്രിക്കാൻ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൌജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ഈ മാസം തുടരും അടുത്ത ആഴ്ച്ച കൊടുത്തു തുടങ്ങുമെന്നും അതിഥി തൊഴിലാളികൾക്കും ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വോയ്സ് ഇന്നത്തെ സ്ഥിതിയിൽ വീടിനകത്ത് രോഗപകർച്ച ഉണ്ടാവാൻ സാധ്യത കൂടുതലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെളിയിൽ പോയി വരുന്നവരിൽ നിന്നും അയൽപ്പക്കക്കാരിൽ നിന്നും രോഗം പകരാൻ സാധ്യതയുണ്ട് വീടിനകത്ത് പൊതു ഇടങ്ങൾ കുറയ്ക്കണം തട്ടുകടകൾ ലോക്ഡൌൺ കാലത്ത് തുറക്കരുതെന്നും വാഹന റിപ്പയർ വർക്ക്ഷോപ്പ് ആഴ്ച്ചയിലെ അവസാന രണ്ട് ദിവസം തുറക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഹാർബർ ലേലം ഒഴിവാക്കും പൾസ് ഓക്സി മീറ്ററുകൾക്ക് വലിയ ചാർജ് ഈടാക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയെടുക്കും

അന്തർ ജില്ലാ യാത്രകൾ പരമാവധി ഒഴിവാക്കണം ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യുന്നവർ സത്യവാങ്മൂലം കയ്യിൽ കരുതണം വളരെ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവർക്ക് ഹൈവേ പൊലീസ് ജീവൻ രക്ഷാ ഔഷധങ്ങൾ എത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദേദ ജില്ല വിട്ട് യാത്ര ചെയ്യുന്നതിന് ഇത്തവണ പാസ് വാങ്ങണമെന്ന് നിർദേശിച്ചിട്ടില്ലെന്നും കഴിഞ്ഞ തവണ പുറത്തിറക്കിയ പാസിന്റെ മാതൃകകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ദേദ അവശ്യ സർവ്വീസ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലോക്ഡൌൺ സമയത്ത് യാത്ര ചെയ്യുന്നതിന് അവരുടെ സ്ഥാപനം നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ഉപയോഗിക്കാമെന്ന് പൊലീസ് അറിയിച്ചു

വീട്ടുജോലിക്കാർക്കും കൂലിപ്പണിക്കാർക്കും തൊഴിലാളികൾക്കും ഇന്ന് സ്വയം തയ്യാറാക്കിയ സാക്ഷ്യപത്രം കയ്യിൽ കരുതി യാത്ര ചെയ്യാം

അടിയന്തിരമായി പാസ്സ് ആവശ്യമുള്ളവർക്ക് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരെ നേരിട്ട് സമീപിച്ച് പാസ്സിന് അപേക്ഷ നൽകാം ദേദ രാജ്യത്ത് കോവിഡ് മൂന്നാം തരംഗം ഇല്ലാതാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് കെ

മാർഗനിർദേശങ്ങൾ വിവിധ തലങ്ങളിൽ എങ്ങനെ കാര്യക്ഷമമായി നടപ്പാക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു ദേദ ലോക്ഡൌൺകാലത്ത് ആളുകൾ അനാവശ്യമായി പുറത്തിറങ്ങുന്നതും ലോക്ഡൌൺ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതും തടയുന്നതിന് കോഴിക്കോട്ട് ഒമ്പത് അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ ആയിരത്തോളം പൊലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു

നിയമലംഘകർക്കെതിരെ വാഹനം പിടിച്ചെടുക്കുന്നതടക്കം നടപടികൾ സ്വീകരിക്കുമെന്നും പൊലീസ് കമ്മീഷണർ അറിയിച്ചു രുദ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം നാലു ലക്ഷം കവിഞ്ഞു

എറണാകുളം ജില്ലയിൽ ഇന്നലെ അയ്യായിരത്തിലേറെയും കോഴിക്കോട് നാലായിരത്തിലേറെയും പേർക്ക് രോഗം സ്ഥിരീകരിച്ചു തിരുവനന്തപുരം മലപ്പുറം തൃശൂർ കണ്ണൂർ ജില്ലകളിൽ മൂവ്വായിരത്തിലേറെയാണ് രോഗികൾ മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗികളുടെ എണ്ണം

ദ്ദേ ലോക്ക്ഡൌൺ കാലയളവിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ പ്രവേശനവും മതപരമായ കൂടിച്ചേരലും നിർത്തിവെച്ചതായി ദേവസ്വം ബോർഡ് കമ്മീഷണർ കോഴിക്കോട്ട് അറിയിച്ചു ക്ഷേത്രങ്ങളിലെ നിത്യപൂജയൊഴികെ എല്ലാ പ്രവർത്തനങ്ങളും ചടങ്ങുകളും നിർത്തിവെക്കും ദേദ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതാത് പഞ്ചായത്ത്തല കെയർ സെന്ററുകളിലേക്ക് മാറണമെന്ന് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു

തോടം മേഖലയിലടക്കം മറ്റു ജില്ലകളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികളുടെ നിത്യയാത്ര അനുവദിക്കില്ല

ദര പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്യൻ യൂണിയൻ കൌൺസിൽ യോഗത്തിൽ ഇന്ന് പ്രത്യേക ക്ഷണിതാവായി പങ്കെടുക്കും

കോവിഡ് മഹാമാരി സംബന്ധിച്ച അഭിപ്രായങ്ങൾ നേതാക്കൾ പരസ്പരം പങ്കുവെയ്ക്കും ആരോഗ്യ മേഖലയിലെ സഹകരണവും സ്ഥായിയായ വളർച്ച മെച്ചപ്പെടുത്തുന്നതും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതും ചർച്ചാ വിഷയമാകും

ദേശീയ സമിതിയ്ക്ക് മുമ്പാകെ കേരളം സമർപ്പിച്ച വാർഷിക പദ്ധതി രൂപരേഖയിലാണ് ഇക്കാര്യം അറിയിച്ചത് പട്ടിക ജാതി പട്ടിക വർഗ ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ വീടുകൾക്ക് മുൻഗണന നൽകാനും സംസ്ഥാനത്ത് കുടിവെള്ള പരിശോധനാ ലാബുകൾ ശാക്തീകരിക്കാനും ദേശീയ സമിതി നിർദേശം നൽകി

കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തം പകർച്ചവ്യാധി മഹാമാരി എന്നിവയെ ചെറുക്കാൻ കേരളത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് സഹായം

ദര സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിൽ എൽ

തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയദിന ദീപം തെളിയിച്ചു കോവിഡ് പശ്ചാത്തലത്തിൽ വീടുകളിൽ മാത്രമായിരുന്നു ആഘോഷം ദ്ദേ സിപിഐഎം കോൺഗ്രസ് ബംഗാൾ ഘടകങ്ങൾ ബംഗാളിലെ അക്രമ സംഭവങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വരുമ്പോൾ സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൌനം അവലംബിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ

കേന്ദ്രമന്ത്രി വി മുരളീധരന് നേരെ ബംഗാളിൽ നടന്ന ത്യണമൂൽ അതിക്രമത്തിനെതിരായി കോഴിക്കോട് നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ചരിത്ര വിജയത്തിന്റെ ഭാഗമായി ആലപ്പുഴ ടി വി സ്മാരകത്തിൽ നടന്ന ആഘോഷ ചടങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് അവസാനപത്തിലെ പകലും രാത്രിയും ആരാധനാ നിർഭരമാക്കുകയാണ് വിശ്വാസികൾ

നിയന്ത്രണങ്ങളോടെ തുറന്ന മുസ്ലീം പള്ളികൾ ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ പൂർണ്ണമായും അടച്ചതോടെ കഴിഞ്ഞ റമദാനിലെ പോലെ ഈ റമദാനിലും ഇന്നു മുതൽ നമസ്കാരവും പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും വീടുകളിലേക്ക് മാറും രുര മുൻ ഫുട്ബോൾ താരവും പരിശീലകനുമായ കണ്ണൂർ പൊടിക്കുണ്ടിലെ പ്രൊഫ

കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു

സെൻട്രൽ കൌൺസിൽ അംഗം കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ദേദ തൃശൂർ കൊടകര കുഴൽപ്പണക്കവർച്ചാ കേസിൽ ഒരാൾ കൂടി പിടിയിൽ